എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സജീവ പ്രചാരണ രംഗത്ത്

ഇന്ദ്രപ്രസ്ഥത്തിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകൾ തുടരുകയാണ് മുന്നണികൾ അവസാനവട്ട സീറ്റ് ചർച്ചകളിലും പാർട്ടികൾ സ്ഥാനാർത്ഥിപട്ടികയ്ക്ക് രൂപം നൽകുന്നതിന്റെ തിരക്കിലുമാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പല മുതിർന്ന നേതാക്കളും ന്യൂഡൽഹിയിൽ എത്തി പാർട്ടി കേന്ദ്ര നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നൃട്ടത്തുകയാണ് അവസാനവട്ട തന്ത്രങ്ങൾ മെനയുന്നതിനും സ്ർസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചരൃങ്ങൾ വിലയിരുത്തിു പ്രമാവധി വോട്ട് നേടാനുള്ള ശ്രമത്തിലുമാണ് മുതിർന്നു നേതാക്കൾ

ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥാനാർത്ഥിപട്ടികയ്ക്ക് യോഗം അന്തിമ രൂപം നൽകുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ തുടങ്ങി ഉന്നത നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും

പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും പാർട്ടി സംസ്ഥാന ഘടകം സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര സമിതിക്ക് കൈമാറിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെട്ടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർഥിപട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയിൽ ് പശ്ചിമ ബംഗാളിലെ ജാംഗ്പൂർ സീറ്റിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മത്സരിക്കും ബഹ്റാംപൂരിൽ അധീർ രഞ്ജൻ ചൌധരിയും റായ്ഗഞ്ചിയിൽ ദീപാ ദാസ്മുൻഷിയുമാണ് സ്ഥാനാർഥികൾ

ഇക്കാരൃത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല രണ്ടു ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ്

മുരളീധരൻ എം

മുരളീധരന്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന് കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു ഹൈക്കമാൻഡുമായി ആലോചിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു

പ്രചാരണം സജീവം

വിശദാംശങ്ങളുമായി ശ്രീലത

പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ സംവിധാനം ഏർപ്പെടുത്തും

സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൌജനൃ ബസ് റെയിൽ യാത്രയും പത്രിക വാഗ്ദാനം ചെയ്യുന്നു വിദ്യാഭ്യാസ വായ്പകൾ എഴുതിതള്ളും

എന്നിവിടങ്ങളിൽ മെട്രോ റെയിൽ ആരംഭിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യ്ക്കു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മു കശ്മീരിലെ ഏറ്റുമുട്ടലിൽ അതിധീരമായി പൊരുതിയത് മാനിച്ചാണ് കീർത്തിചക്രകൾ നൽകിയത് ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളിൽ കൈവരിച്ച വിജയം പരിഗണിച്ച് ലഫ്റ്റനന്റ് ജനറൽ അനിൽകുമാർ ഭട്ടിന് ഉത്തം യുദ്ധ് സേവാ മെഡൽ സമ്മാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടക്കം വിശിഷ്ഠ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു

കഴിഞ്ഞ യോഗത്തിൽ ഫ്ളാറ്റുകളുടെ നികുതി അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു

മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തുന്ന കാര്യം യോഗം ചർച്ചചെയ്യില്ല

ജെ പി നേതാവ് പ്രമോദ് സാവന്ത് പുതിയ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ് ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ നിര്യാണത്തെ തുടർന്നാണ് സാവന്ത് പുതിയ സംസ്ഥാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്

ഗോവയിലെ സംഖാലിം മണ്ഡലത്തെയാണ് സാവന്ത് പ്രതിനിധീകരിക്കുന്നത്

ഗോവ ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രീ സാവന്തിനും മന്ത്രിസഭാംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രപ്ധാനമന്ത്രി ആശംസിച്ചു ഗോവയെ വികസനപാതയിൽ ബഹുദൂരം മുന്നോട്ട് നയിക്കാൻ പുതിയ ഗവൺമെന്റിന് കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി പ്രത്യാശിച്ചു

ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ച വച്ചതോടെയാണ് നേട്ടം സാധ്യമായത് ടേബിൾ ടെന്നീസിൽ നാല് സ്വർണവും ഒരു വെള്ളിയും ഇന്ത്യയ്ക്ക് ലഭിച്ചു

ഇന്ത്യൻ വെൽസിലെ മികച്ച പ്രകടനമാണ് ഗുണേശ്വരന്റെ റാങ്ക് നില ഉയർത്തിയത്